തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ തീരപ്രദേശങ്ങളിൽ ഇന്നു മുതൽ ഒരാഴ്ച കൂടി കർശന ലോക്ക്ഡൌൺ തുടരുമെന്ന് ജില്ലാ കലക്ടർ

സമ്പർക്കം വഴി രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും വർധിക്കുന്നു

ഹർഷ് വർധൻ

എ കോടതി ഇന്ന് പരിഗണിച്ചേക്കും

വോയ്സ് രുമ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാണിക്യവിളാകം പൂന്തുറ പുത്തൻപള്ളി വാർഡുകൾ കൊല്ലത്തെ ചവറ പന്മന ആലപ്പുഴയിൽ പട്ടണക്കാട് കടക്കരപ്പള്ളി ചേർത്തല സൌത്ത് മാരാരിക്കുളം നോർത്ത് കോടംതുരുത്ത് കുത്തിയതോട് തുറവൂർ ആറാട്ടുപുഴ എറണാകുളത്ത് ചെല്ലാനം മലപ്പുറത്ത് വെളിയംകോട് പെരുമ്പടപ്പ പൊന്നാനി മുനിസിപ്പാലിറ്റി താനൂർ മുനിസിപ്പാലിറ്റി എന്നീ തീര മേഖലകളിലാണ് നിയന്ത്രണം

തീര മേഖലകളിലെ തീവ്ര കണ്ടെയിൻമെന്റ് സോണുകളിലെ കുടുംബങ്ങൾക്ക് അഞ്ച് കിലോ അരി സൌജന്യമായി നൽകും

ആവശ്യക്കാർക്ക് മാറി താമസിക്കാൻ റിവേഴ്സ് ക്വാറന്റൈൻ സ്ഥാപനങ്ങൾ സജ്ജീകരിക്കും

കണ്ടെയ്ൻമെന്റ് സോണിൽ എവിടെയും നിർത്താൻ അനുവദിക്കില്ലെന്ന നിബന്ധനയോടെ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം അനുവദിക്കും

മെഡിക്കൽ അടിയന്തിര സാഹചര്യങ്ങൾ അവശ്യവസ്തുക്കളുടെയും സേവനങ്ങളുടെയും വിതരണം എന്നിവയല്ലാതെ കണ്ടെയിന്മെന്റ് സോണുകളിലേക്കോ പുറത്തേക്കോ യാത്ര അനുവദിക്കില്ല രുമ തിരുവനന്തപുരം കോർപ്പറേഷനു കീഴിലെ പ്രദേശങ്ങളിൽ ഇന്നു മുതൽ ഒരാഴ്ച കൂടി കർശന ലോക്ക്ഡൌൺ തുടരുമെന്ന് ജില്ലാ കലക്ടർ ഡോ

മരുന്ന് ജനകീയ ഹോട്ടലിലെ ഭക്ഷണം എന്നിവ ഒഴികെ മറ്റൊന്നിനും ഡോർഡെലിവറി അനുദവിക്കില്ല

ക്രിട്ടിക്കൽ കണ്ടെയിൻമെന്റ് സോണുകളായ പൂന്തുറ പുത്തൻപള്ളി മാണിക്യവിളാകം വാർഡുകൾക്ക് പുതിയ ഇളവുകൾ ബാധകമായിരിക്കില്ലെന്നും കലക്ടർ അറിയിച്ചു

സംസ്ഥാനത്ത് സമ്പർക്കംവഴി രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും വർധിക്കുകയാണ്

ആലപ്പുഴ ജില്ലയിൽ നാലും തിരുവനന്തപുരത്ത് രണ്ടും പത്തനംതിട്ട എറണാകുളം കോട്ടയം കാസർകോട് ജില്ലകളിൽ ഓരോരുത്തർക്കും ഉൾപ്പെടെ പത്ത് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നലെ രോഗം ബാധിച്ചു കണ്ണൂർ ജില്ലയിലെ ഒരു ഡി

സി ജവാനും ഒരു സി ഐ എസ് എഫ് ജവാനും രോഗം സ്ഥിരീകരിച്ചു

മൂന്ന് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി ദേദ കാസർകോട് ജില്ലയിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് ഭീതി ഉയർത്തുന്നു

നെടുമ്പന പള്ളിമൺ ഇളവൂർ സ്വദേശി ഗൌരിക്കുട്ടിയമ്മയുടെ മൃതദേഹ സ്രവ കൊവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്

രുമ കോഴിക്കോട് നഗര പരിധിയിൽ നിലവിൽ കോവിഡ് രോഗം നിയന്ത്രണവിധേയമെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി അതേസമയം രോഗംസ്ഥിരീകരിച്ച ചിലരുടെ ഉറവിടം വ്യക്തമാകാത്തിനാൽ കോർപ്പറേഷൻ ഓഫീസിൽ പൊതുജനങ്ങൾക്ക് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണം ഒരാഴ്ച കൂടി തുടരും രുമ കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയം കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമായി ഏറ്റെടുത്ത് ജില്ലാ കലക്ടർ ടി വി സുഭാഷ് ഉത്തരവിറക്കി കൺടോൺമെന്റ് ഏരിയയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർധിച്ചുവരുന്ന സാഹചര്യത്തിൽ സൈനിക ആശുപത്രിയിലെ സംവിധാനങ്ങൾ മതിയാകാതെ വന്നതിനെ തുടർന്നാണ് നടപടി

രുഭ വ്യാപകമായ പരിശോധനയിലൂടെ കോവിഡ് രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കിയതിലൂടെ രാജ്യത്ത് മരണനിരക്ക് കുറക്കാൻ കഴിഞ്ഞെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

രണ്ടു പേരെയും ഇന്നലെ മൂന്ന് ദിവസത്തേക്ക് കോടതി റിമാന്റ് ചെയ്തിരുന്നു ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി

സ്വപ്ന സുരേഷിനെ തൃശൂർ കോവിഡ് കെയർ സെന്ററിലേക്കും സന്ദീപിനെ കറുകുറ്റി കോവിഡ് കെയർ സെന്ററിലേക്കുമാണ് ഇന്നലെ മാറ്റിയത് രുഭ തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് സംസ്ഥാനത്തിന് പുറത്ത് പോയതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിട്ടു വിഴ്ചയുമുണ്ടായിട്ടില്ലെന്ന് മന്ത്രി ഇ

ഇക്കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു രേര രാജ്യാന്തര സ്വർണക്കളളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരെ സമരം ശക്തമാക്കുന്നതി നെക്കുറിച്ച് ആലോചിക്കാൻ യു ഡി എഫ് നേതൃയോഗം ഇന്ന് രാവിലെ വിഡിയോ കോൺഫറൻസിങ് വഴി ചേരും സംസ്ഥാന ഗവൺമെന്റ് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം ചർച്ച ചെയ്യും രുമ രാജ്യാന്തര വിമാനത്താവളത്തിൽ ദുബായിൽ കണ്ണൂർ നിന്നെത്തിയ രണ്ടു വിമാനങ്ങളിൽ നിന്നായി കസ്റ്റംസ് രണ്ട് കിലോയിലധികം സ്വർണ്ണം പിടികൂടി ഫ്ളൈ ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിലെത്തിയ കാസർഗോഡ് നാദാപൂരം സ്വദേശികളായ ഏഴുപേരിൽ നിന്നാണ് സ്വർണ്ണം പിടിച്ചെടുത്തത് ദേദ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും

ജസ്റ്റിസുമാരായ യു യു ലളിത് ഇന്ദുമൽഹോത്ര എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക രുമ രാജ്യത്ത് കായിക പ്രവർത്തനങ്ങൾ പുനഃരാരംഭിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു സംസ്ഥാനങ്ങളിലേയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേയും സ്പോർട്സ് മന്ത്രിമാരുമായി ചർച്ച നടത്തും നാളെയും മറ്റന്നാളും ഓൺലൈൻ വഴി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ കായിക മേഖലയിൽ കോവിഡ് മഹാമാരിക്കാലത്ത് കൈക്കൊണ്ട നടപടികൾ അദ്ദേഹം അവലോകനം ചെയ്യും ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ പുതിയ കായിക താരങ്ങളെ കണ്ടെത്തുന്നത് ചർച്ചാ വിഷയമാകുമെന്ന് കിരൺ റിജിജു അറിയിച്ചു

എൽ എമാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും ഗെയ്ലോട്ട് മന്ത്രിസഭ ന്യൂനപക്ഷമായെന്നും സച്ചിൻ പൈലറ്റ് ജയ്പൂരിൽ പ്രസ്താവനയിൽ അറിയിച്ചു ചില കക്ഷി രഹിത എം എൽ എമാരും പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതിസന്ധി പരിഹരിക്കാനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സുർജെവാല അജയ് മാക്കൻ അവിനാഷ് പാണ്ഡെ എന്നിവർ ജയ്പൂരിലെത്തി

യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു

ഉക്രൈൻ ലണ്ടൻ ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ നിന്ന് വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും